ഡി എ വിട്ടു

വ്യാപക തിരിമറിയെന്ന് പ്രതിപക്ഷ നേതാവ്

ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്

ശനിയാഴ്ച സൂക്ഷ്മപരിശോധന നടത്തും

മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പ്രതിക സമർപ്പിച്ചു

മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർഥികൾ ് പരമാവധി വോട്ടർമാരെ നേരിൽക്കാണാനുള്ളൂ തിർക്കിലാണ്

്രമുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് മാത്രമാണ് ഇനീ ക്കോൺഗ്രസ് സ്ഥാനാർഥിയെ പ്രഖ്യാപിക്കാനുള്ളത്

തുടക്കത്തിൽ തന്നെ സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ച എൽ ഡി എഫ് മണ്ഡലം മേഖലാ കൺവൻഷനുകൾ പൂർത്തിയാക്കി ബൂത്ത് കൺവൻഷനുകൾ ആരംഭിച്ചു

ഡി എഫും എൻ ഡി

ഡി എഫിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയർന്ന പ്രതിഷേധം ശമിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജില്ലാ പരൃടനത്തിന് ഇന്ന് വയനാട്ടിൽ നിന്ന് തുടക്കമായി ഒരാഴ്ചയായി കണ്ണൂരിലുള്ള മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് വോട്ടഭ്യർഥനയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നിവർ അടക്കമുള്ള നേതാക്കൾ വിവിധ ജില്ലകളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും അടുത്തയാഴ്ചയോടെ ദേശീയ നേതാക്കളും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തും

ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് കട്ടപ്പന ടൌൺഹാളിൽ നടക്കും

ഐ

സി സെക്രട്ടറി ഐവാൻ ഡിസൂസ ഉദ്ഘാടനം ചെയ്യും പ്രചാരണം മുഖ്യമന്ത്രി ഇന്നും നാളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും ഇന്ന് വൈകിട്ട് ഏറനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും നാളെ നാലിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെട്ടുക്കുന്ന മുഖ്യമന്ത്രി ഏലംകുളത്ത് ഇ

ഡി എ ക്കുന്ദ്മംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മറ്റി ഓഫീസ് ഉദ്ഘാട്നം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന ബിജെപി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ശക്തി പ്രാപിച്ച് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ നിർണായക പങ്ക് വഹിക്കുന്ന സ്ഥാനത്ത് വരേണ്ടത് ആവശ്യമാണെന്നും ശ്രീ രാജഗോപാൽ പറഞ്ഞു

എഫിന് നിലവിൽ മേൽക്കൈയുള്ള ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലായി ഉയരുന്ന പക്ൽച്ചൂട് മണ്ഡല പര്യടനത്തിന് വെല്ലുവിളിയാകുമ്പോൾ പ്രത്യേക സമയ ക്രമീകരണങ്ങളിലൂടെ വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങളിലെത്തുകയാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആർ

സി തോമസിന്റെ നേതൃത്വത്തിലുള്ള കേരളാ കോൺഗ്രസ് എൻ

നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് നടപടിയെന്ന് പി

അതേ സമയം കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം പി സി തോമസ് നയിക്കുന്ന കേരളാ കോൺഗ്രസിൽ ലയിക്കാൻ നീക്കം നടക്കുന്നതായി ഇരു വിഭാഗം നേതൃത്വവും അറിയിച്ചു ഇന്ന് കടുത്തുരുത്തിയിൽ ലയനം നടത്താനും തുടർന്ന് യു ഡി എഫ് കൺവെൻഷനിൽ പി സി തോമസ് പങ്കെടുക്കാനുമാണ് നീക്കം

പല മണ്ഡലത്തിലും ഒരാൾക്കു ്ത്ണ്ണ ഒന്നിലധികം വോട്ടുള്ളതായി കണ്ടെത്തിയെന്നും തെരുഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹിം പ്പാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഐ

സി പ്രഖ്യാപിച്ച സ്ഥാനാർഥികളെ മാറ്റാറില്ലെന്നും കോൺഗ്രസിലെ തലമുറ മാറ്റം പ്രകടമാക്കുന്നതാണ് സ്ഥാനാർഥിപ്പട്ടികയെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു

ഡി

കേരളത്തിൽ സി

ഐ എമ്മും ബി

പിയും വോട്ടുകച്ചവടം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

കോവിഡ് ബാധിതർക്കും രോഗ നിരീക്ഷണത്തിലുള്ളവർക്കും സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തപാൽ ബാലറ്റ് അനുവദിക്കും

ആയിരം പേർക്ക് ഒരു ബൂത്ത് എന്ന തരത്തിൽ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കാൻ ഉന്നത തല യോഗത്തിൽ തീരുമാനമായി

വൃദ്ധ സദനങ്ങളിൽ മൊബൈൽ യൂണിറ്റുകൾ സജ്ജമാക്കി കുത്തിവയ്പ്പ് ആരംഭിച്ചിട്ടുണ്ട്

കണ്ണൂർ ജില്ലയിൽ ഇന്നുമുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിൻ നൽകും

കൊല്ലം ജില്ലയിലെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളും നടത്തി ജന പ്രാതിനിധൃം വർധിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് ക്യാമ്പ് ഇടുക്കി കുട്ടിക്കാനത്തും അടിമാലിയിലും നടത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പരിശോധനകൾ കുറച്ചിട്ടില്ലെന്നും വാക്സിൻ വിതരണം ഫലപ്രദമായി നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധൃമങ്ങളോട് പറ്റഞ്ഞു

് വൈകിട്ട് അഞ്ചിനകം രക്ഷിതാക്കളാണ് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത്

ഇന്ന് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ താപനില സാധാരണഗതിയിൽ നിന്നും നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്

കോവിഡ് അനുഭവത്തെക്കുറിച്ച് കൂടുംബാംഗത്തിന് ഒരു കത്ത് എന്നതാണ് വിഷയം

രണ്ടാം ശനിയാഴ്ചക്കും ഞായറാഴ്ചയ്ക്കും പിന്നാലെ രണ്ടുദിവസം ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്നാണ് ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടത് ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ രാജ്യ വ്യാപകമായി പണിമുടക്കിയത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ഉത്സവത്തിന്റെ ഭാഗമായി രേവതി വിളക്ക് തെളിഞ്ഞു ഇന്ന് അശ്വതി കാവ് തീണ്ടൽ കോവിഡ് നിയന്ത്രണങ്ങൾ തുടരവേ ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്

കാഡ്ടുത്രീണ്ടൽ ദിവസമായ ഇന്ന് കൊടുങ്ങല്ലൂർ താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്ലാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്